ഇസ്രായേലും എത്രയും വേഗം സമാധാനത്തിലേക്ക് മടങ്ങുകയെന്നതാണ് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് ഇന്ത്യ

ബാച്ചാണ് വിതരണമാരംഭിച്ചത് വിശദാംശങ്ങളുമായി കരോൾ എബ്രഹാം

അണു ബാധിതമായ കോശങ്ങളിൽ എത്തുന്ന മരുന്ന് വൈറസിന്റെ തുടർന്നുള്ള വളർച്ചയെ തടയുകയും ഊർജ്ജ ഉൽപ്പാദനത്തെ പ്രതിരോധിക്കുകയും ചെയ്യും വൈറസ് ബാധിതമായ കോശങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്നു എന്ന പ്രത്യേകതയും മരുന്നിനുണ്ട് ഗ്ലൂക്കോസ് സംയുക്തത്തിൽ നിന്നും രൂപപ്പെടുത്തുന്ന മരുന്ന് വളരെ വേഗം ഉത്പാദിപ്പിക്കാനും രാജ്യത്തുടനീളം കുറഞ്ഞ സമയത്തിനുളളിൽ ലഭ്യമാക്കാനും സാധിക്കും ആശുപത്രികളിൽ കഴിയുന്ന രോഗികളിൽ ഓക്സിജൻ സഹായം കുറയ്ക്കാനും വളരെവേഗം ആശുപത്രിവാസം ഒഴിവാക്കാനും മരുന്ന് സഹായിച്ചതായി പരീക്ഷണങ്ങളിൽ തെളിഞ്ഞുവെന്ന് ആകാശവാണി പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു

ഒ യിലെ ശാസ്ത്രജ്ഞരെയും നിർമ്മാണത്തിൽ സഹകരിച്ചു ഡോ റെഡ്സിസ് ലാബിനെയും കേന്ദ്ര ആരോഗൃ കുടുംബക്ഷേമ മന്ത്രി ഡോ

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദേശത്തെ തുടർന്നായിരുന്നു ചർച്ച കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം ജല റെയിൽവേ മന്ത്രാലയങ്ങൾ കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ ക്ലേന്ദ്ര ഭരണ പ്രദേശമായ ദാദ്രാ നഗർ ഹവേലി ദാമൻ ദിയു പ്രതിനിധികൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു

നാളെ പുലർച്ചെ ഗുജറാത്ത് തീരത്ത് പോർബന്തറിനും മഹുവായ്ക്കും മദ്ധ്യേ ടൌട്ടെ തീരം തൊടുമെന്ന് കാലാവസ്ഥ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഗുജറാത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഇന്നും നാളെയും അതി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ കേന്ദ്രം വ്യക്തമാക്കി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ചില പ്രദേശങ്ങളിൽ വാക്സിൻ വിതരണം നിർത്തിവച്ചിട്ടുണ്ട് കേന്ദ്ര ആഭൃന്തര മന്ത്രി അമിത് ഷാ ഇന്നലെ ഗുജറാത്ത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിമാരുമായും ദാമൻ ദിയു ദാദ്ര നഗർ ഹവേലി അഡ്മിനിസ്ട്രേറ്റർമാരുമായും ഒരുക്കങ്ങൾ വിലയിരുയിരുത്തി

ജനങ്ങൾ ജിഗ്രത പാലിക്കണമെന്നും ദേശീയ ദുരന്തനിവാരണ സേന്റ്യ പിന്യസിച്ചിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു

സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി രണ്ടായിരത്തിലേറെ പേരെയാണ് മാറ്റിപാർപ്പിച്ചിട്ടുള്ളത്

ഹമാസ് നേതാവ് യഹ്യ സിൻവാറിന്റെയും സഹോദരൻ മുഹമ്മദ് സിൻവാറിന്റെയും വീടുകളിലും ഇസ്രയേൽ ആക്രമണം നടത്തി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഹമാസിന്റെ ഭാഗത്തുനിന്ന് വൻ തോതിൽ റോക്കറ്റ് ആക്രമണം ഉണ്ടായതായി ഇസ്രയേൽ സൈന്യം ആരോപിച്ചു അതിനിടെ സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഇന്നലെ ചേർന്ന യു

മധ്യസ്ഥ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി

കോവിഡ് വ്യാപനം രൂക്ഷമായ തിരുവനന്തപുരം എറണാകുളം തൃശ്ശൂർ മലപ്പുറം ജില്ലകളിലാണ് ഒരാഴ്ചത്തേക്ക് ട്രിപ്പിൾ ലോക്ക് ഡൌൺ ഏർപ്പെടുത്തിയിട്ടുള്ളത്

മന്ത്രിസഭാ വിഭജനം സംബന്ധിച്ച ചർച്ചകൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇടതുമുന്നണി യോഗം ഇന്ന് എ കെ ജി സെന്ററിൽ ചേർന്നു

മന്ത്രി സ്ഥാനത്തിൽ വിട്ടുവീഴ്ചക്ക് തയ്യാറാണെന്ന് ആന്റണി രാജു മുന്നണി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്

ബി ഐ

മന്ത്രിമാരായ ഫിർഹാദ് ഹക്കീമും സുബ്രതോ മുഖർജിയുമാണ് അറസ്റ്റിലായത് തൃണമൂൽ എം എൽ എ മദൻ മിത്രയേയും മുൻ എം

സോവൻ ചാറ്റർജിയേയും സി ബി ഐ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്

മൃതദേഹങ്ങൾ സുരക്ഷിതമായി സംസ്ക്ക്രിക്കണമെന്നും മാന്യമായ ശവസംസ്കാരം ഉറപ്പാക്കണമെന്നും കേന്ദ്ര് സർക്കാർ നിർദ്ദേശിച്ചു